കര നാവിക വ്യോമസേനാവിഭാഗങ്ങളിൽപെടുന്ന കേഡറ്റുകൾ പ്രധാനമന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകും തുടർന്ന് മാർച്ച് പാസ്റ്റ് നടക്കും വിവിധ വിഭാഗങ്ങളിലെ മികച്ച കേഡറ്റുകൾക്കുള്ള പുരസ്കാരങ്ങളും പ്രധാനമന്ത്രി സമ്മാനിക്കും തുടർന്ന് അദ്ദേഹം കേഡറ്റുകളെ അഭിസംബോധന ചെയ്യും

ന്യൂഡൽഹിയിലെ തൽക്കത്തോര സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ രാജ്യമെമ്പാടും നിന്നായി രണ്ടായിരത്തിലധികം വിദൃാർത്ഥികൾ പങ്കെടുക്കും പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട മാനസിക പിരിമുറുക്കങ്ങളും ചർച്ചയാകും ഇതാദൃമായി ഇന്തൃയ്ക്ക് പുറത്ത് പഠിക്കുന്ന കുട്ടികളും പരിപാടിയിൽ പങ്കെടുക്കും

റഷ്യ നൈജീരിയ ഇറാൻ നേപ്പാൾ ദ്ദോഹ കുവൈറ്റ് സൌദി അറേബ്യ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ സ്ലിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ പങ്കെടുക്കും ആകാശവാണിയും

ലക്ഷം രൂപയുടെ സ്വന്തം ജാമൃത്തിലും തത്തുല്യമായ തുക ഒരു കെട്ടിവയ്ക്കുകയും വേണം എന്ന ഉപാധികളോടെയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത് മൂന്ന് പേർക്കും കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം ഇന്ന് അവസാനിക്കും രണ്ട് ഐ ആർ സി ടി സി ഹോട്ടലുകൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് കരാറിന് നൽകിയതുമായി ബന്ധപ്പെട്ട അഴിമതിക്കേസാണ് ലാലുവിന്റെ പേരിലുള്ളത്

ബിക്കാനേറിൽ മൂന്നും നാഗൂരിൽ ഒരു പദ്ധതിയുമാണ് നടപ്പാക്കുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇ ഒ മാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ധനമന്ത്രി പീയുഷ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേരും ബാങ്കിംഗ് മേഖലയുടെ നിലവിലെ ക്രിസ്മിതിയും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങളും യ്യോകും ചർച്ച ചെയ്യും കേന്ദ്ര ബജറ്റിനു മൂന്നു ദിവസം മുമ്പ് നടക്കുന്ന് യോഗം നിർണായകമാണെന്നാണ് ചെറുകിട്ടി ഇടത്തരം വ്യവസായ മേഖലയ്ക്കും കരുതപ്പെടുന്നത് കാർഷിക ചില്ലറ പിൽപ്പിന് മേഖലകളിലുമുള്ള വായ്പാ പദ്ധതികളും യോഗം വിലയിരുത്തും ചികിത്സയിലായതിനെ തുടർന്ന് ശ്രീ പീയുഷ് ഗോയലാണ് ധനമന്ത്രാലയത്തിന്റെ ചുമതല വഹിക്കുന്നത്

സാങ്കേതിക ടെക്സ്റ്റൈൽ രംഗത്ത് ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ നിയമാവലികൾ അനാവരണം ചെയ്യുക എന്നതാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ടെക്സ്റ്റൈൽ വ്യവസായത്തിലെ മികവാർന്ന മേഖലയായ സാങ്കേതിക വിഭാഗം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്

ആഗോളതലത്തിലെ സാങ്കേതിക ടെക്സ്റ്റൈൽ വാണിജ്യരംഗത്ത് ഇന്ത്യയ്ക്ക് നാല് മുതൽ അഞ്ച് ശതമാനം പങ്കാളിത്തമാണ് ഉള്ളത് പി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എം

എ യായിരുന്ന ഹരിചന്ദ് മിദ്ധയുടെ മരണത്തെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ്

അധിനിവേശ ഭരണത്തിന് എതിരെ പോരാടാൻ രാജ്യത്തിന് പ്രചോദനം നൽകിയ ലാലാ ലജ്പത് റായി സാമൂഹിക പരിഷ്കരണം ആഭ്യന്തര സംരംഭങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിച്ചിരുന്നതായും രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു

ഹർത്താലുകളുടെ മറവിൽ അക്രമത്തിന് നേതൃ നൽകിയവർക്കെതിരെ ത്വം ശക്തമായ നടപടി സ്വീകരിക്കും പ്രതിപക്ഷം സഹകരിച്ചാൽ അനാവശ്യ ഹർത്താലുകൾ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ആലോചിക്കുന്നതിന് സർവ്വക്ഷിയോഗം വിളിക്കാൻ തയ്യാറാണെന്ന് ചോദ്യത്തിന് ഉത്തരമായി മുഖ്യമന്ത്രി അറിയി ച്ചു

ടി ടൂറിസം മേഖലകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുന്ന കാര ്യവും ചർച്ചു ചെയ്യാവുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പകൽസമയത്ത് ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്

മൂന്ന് കുട്ടികളുടെ നില ഗുരുതരമാണ് ഗുണ്ടൂർ ജില്ലയിൽ ഇന്ന് രാവിലെയാണ് സംഭവം

ഗവർണ്ണർ ജഗദീഷ് മുഖി സഭയെ അഭിസംബോധന ചെയ്യവെ പ്രതിപക്ഷ പ്രാർട്ടികളായ കോൺഗ്രസ് എ ഐ യു ഡി എഫ് അസോം ഗണ പ്രിഷത്ത് അംഗങ്ങൾ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു

പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഗവർണർ പ്രസംഗം പൂർത്തിയാക്കിയത്

അഴിമതി തടയാൻ അസം ഗവൺമെന്റ് അഹോരാത്രം പരിശ്രമിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു

പാണ്ഡൃ ചാഹൽ ഭുവനേശ്വർ കുമാർ എന്നിവർ രണ്ടുവീതം വിക്കറ്റ് വീഴ്ത്തി